ഒ ്ട ൻ പ്രളയക്കെടുതി സംബന്ധിച്ച കേന്ദ്ര വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാലൂടൻ കേരളത്തിന് പരമാവധി സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രളയത്തിൽ കേരളത്തിലെ പൈതൃക കേന്ദ്രങ്ങൾക്കുണ്ടായ നഷ്ടം കൂടി പഠന വിധേയമാക്കണമെന്ന് കുമ്മനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു പ്രളയ ദുരിതം നേരിട്ട കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ്രകാണും വൈകീട്ട് അഞ്ചരക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച്ചു

സംസ്ഥാനത്തെ പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും അദ്ദേഹം നരേന്ദ്രമോദിയെ ധരിപ്പിക്കും

സംസ്ഥാനത്തെ പ്രളയ നാശനഷ്ടം വിലയിരുത്തിയ ലോക ബാങ്ക് എഡിബി സംഘത്തിന്റെ റിപ്പോർട്ടും അദ്ദേഹം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് നിതിൻ ഗഡ്ഗരി സുരേഷ് പ്രഭു എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച്ചക്ക് സമയം ചോദിച്ചിട്ടുണ്ട് നാളത്തെ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മുഖൃമന്ത്രി രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തും കേരളത്തിലെ പ്രളയ നഷ്ടം വിലയിരുത്തിയ കേന്ദ്ര സംഘം ഒരാഴ്ച്ചക്കകം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന് സംഘത്തലവനും ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറിയുമായ ബി

ശർമ്മ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു പ്രളയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ അദ്ദേഹം അഭിനന്ദിച്ചു പ്രളയ മേഖലയിലെ വീടുകളും സ്ഥാപനങ്ങളും ജനകീയ പങ്കാളിത്ത്തോടെ ശുചീകരിക്കാനും ജനജീവിതം സാധാരണ ഗതിയിലാക്കാനും ഗവൺമെന്റ് മാതൃകാപരമായ നടപടികൾ എടുത്തായി സംഘം വിലയിരുത്തി കോഴിക്കോട് ജില്ലയിൽ ഉരുൾപ്പൊട്ടലുണ്ടായ കരിഞ്ചോലമല ഐക്യരാഷ്ട്ര പ്രതിനിധി സന്ദർശിച്ചു യുഎൻഡിപി പ്രോജക്ട് കോ ഓർഡിനേറ്റർ മനീഷ് മോഹൻദാസാണ് ഇന്നലെ വൈകീട്ട് കരിഞ്ചോലമലയിൽ എത്തിയത് കേരളത്തിലെ മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ പ്രകൃതിക്കും പ്പരിസ്ഥിതിക്കും ഇണങ്ങുന്ന തരത്തിലാകണമെന്ന് നിയമസഭാ പരിസ്ഥിതി കമ്മറ്റി ചെയർമാൻ മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചു ഇടുക്കി ജില്ലയിലെ തെളിവെടുപ്പിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

പഞ്ചാബിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്

ഇതേ തുടർന്ന് ചാർഥാം തീർത്ഥാടന യാത്ര തടസ്സപ്പെട്ടു ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ഡൽഹി അരുണാചൽ അസം മേഘാലയ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്

ഇവരിൽ ഏറെയും വിദ്യാർത്ഥികളാണ് ബിഷപ് ഫ്രാങ്കോ മുളക്കലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കന്യാസ്ത്രീകളും വൈദികരും സഭാ താൽപര്യങ്ങൾക്കും സന്റാസ നിയമങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് കെസിബിസി കുറ്റപ്പെടുത്തി സഭയുടെ മുഴുവൻ പ്രതിഛായ കളങ്കപ്പെടുത്താൻ നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിച്ചുവെന്നും കെസിബിസി കൊച്ചിയിൽ

സഭയുടെ ശത്രുക്കൾക്ക് കത്തോലിക്കാ സഭയെയും അധികാരികളെയും ചടങ്ങുകളേയും പരസ്യമായി അവഹേളിക്കാൻ അവസരം നൽകി ഇത്തരം സമരങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കെസിബിസി വൃക്തമാക്കി ഫ്രാങ്കോ മുളക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്തതിന് വയനാട് മാനന്തവാടി രൂപതയിലെ സിസ്റ്റർ ലൂസി കളപ്പുരക്കെതിരെ എടുത്ത നടപടികൾ കാരക്കാമല ഇടവക സമിതി പിൻവലിച്ചു പള്ളിയുടെ ചുമതലയിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും വിട്ടു നിൽക്കാനായിരുന്നു നേരത്തെ നിർദേശ നൽകിയിരുന്നത് ഇന്നലെ വൈകീട്ട് കാരക്കാമല സെന്റ്മേരീസ് പള്ളിയിൽ ചേർന്ന ഇടവക യോഗമാണ് സിസ്റ്റർക്കെതിരായ വിലക്ക് നീക്കാൻ തീരുമാനമെടുത്തത്

സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധമന്ദിരമാണ് തവന്നൂരിലേതെന്ന് അദ്ദേഹം പറഞ്ഞു മരണത്തിന്റെ പേരിൽ പ്രതിഷേധിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മന്ത്രി വൃക്തമാക്കി അതേസമയം സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അന്തേവാസികളുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ

ശൈലജയും സാമൂഹൃ നീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ് കെപിസിസി പ്രസിഡന്റ് ഉൾപ്പടെ പുതിയ സംസ്ഥാന ഭാരവാഹികൾ മറ്റന്നാൾ ചുമതലയേൽക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെപിസിസി പ്രസിഡന്റായും കെ സുധാകരൻ എം

ഷാനവാസ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരായും തിരുവനന്തപുരം ഇന്ദിരാ ഭവനിൽ ചുമതലയേൽക്കും

ആന്റണി ഉൾപ്പടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും

റെയിൽവേസാണ് നിലവിൽ ചാമ്പ്യൻമാർ

ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഉറപ്പാക്കിയ ഇന്ത്യ സൂപ്പർ ഫോർ അവസാന മത്സരത്തിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും സൂപ്പർ ഫോറിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാൻ തോറ്റിരുന്നു

കണ്ണൂർ സർവ്വകലാശാല വനിത ബാസ്കറ്റ്ബോളിൽ കണ്ണൂർ എ സ്

ശ്രീകണ്ഠപുരം എസ്

എസ് കോ ളേജ് രണ്ടാംസ്ഥാനവും കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗ വൺമെന്റ് വനിതാകോളേജ് മൂന്നാം സ്ഥാനവും നേടി ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നു രാവിലെ പന്തളത്ത് ഉന്നതതല യോഗം ചേരും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വകൂപ്പ് മേധാവികൾ ദേവസാം ബോർഡ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും മലയാള ഭാഷയോട് സ്നേഹം വേണമെന്നും അതേസമയം ഭാഷാഭ്രാന്ത് ആവശ്യമില്ലെന്നും മന്ത്രി ഡോ

തിരൂർ മലയാള സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം മലയാള സർവകലാശാല സിൻഡിക്കേറ്റ് പുനസംഘടന വേഗത്തിലാക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങിളിൽ പഠിക്കാൻ പോകുന്നത് ഒഴിവാക്കാൻ ശാസ്ത്രീയ രീതിയിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് മന്ത്രി എ

ജനങ്ങൾ കൂടുതലായും സ്വന്തം വാഹനങ്ങളെ ആശ്രയിക്കുന്നതുമൂലം റോഡുകളിൽ ഗതാഗത തിരക്ക് കൂടുകയും പൊതുവാഹനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ്

പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷനിൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കോഴിക്കോട് ജില്ലയെ മാലിനൃവിമുക്തമാക്കുന്ന ശൂചിത്വ സാക്ഷരത കർമ്മ പരിപാടിക്ക് ഇന്ന് മന്ത്രിമാരായ ടി

രാമകൃഷ്ണനും എ

ശശീന്ദ്രനും ചേർന്ന് തുടക്കം കുറിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മിഷൻ ഹരിത്വ കേരളം മിഷൻ എന്നിവയുടെ പങ്കാളിത്തതോടെയാണ് പരിപാടി ന്ടപ്പാക്കുന്നത്

മൊയ്തീൻ കൊച്ചിയിൽ അറിയിച്ചു

തുടർ ജോലികൾ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി സമയത്തു തന്നെ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സാലറി ചലഞ്ചിനെ എതിർക്കുന്നവരോട് പുനർ വിചിന്തനത്തിന് ആഹാനം ചെയ്ത് കാസർകോട് ജില്ലാ പൊലീസ് മേധാവി ഇറക്കിയ സർക്കുലർ വിവാദമായി പൊലീസുകാർക്ക് കിട്ടുന്ന സ്ഥാനക്കയറ്റങ്ങൾ ഗവൺ മെന്റിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന വിദേശികൾക്ക് പണം കൈമാറുന്ന ഏജന്റുമാരായി പ്രവർത്തിച്ച രണ്ട് രാജസ്ഥാൻ സ്വദേശികളെ മഞ്ചേരി പൊലീസ് അറസ്റ്റ് ചെയ്തു ഓൺലൈൻ തട്ടിപ്പുകാരായ രണ്ട് കാമറൂൺ സ്വദേശികളെ നേരത്തെ പൊലീസ് പിടികൂടിയിരുന്നു ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ടു പേരാണ് ഇപ്പോൾ പിടിയിലായത്

സുകുമാരൻ നായർ അറിയിച്ചു എൻഎസ്എസും വൈശൃ ക്ഷേമ സഭയും ഈ ആവശൃം ഉന്നയിച്ച് നൽകിയ ഹർജികൾ ഇന്നലെ സുപ്രീം കോടതി തള്ളിയിരുന്നു എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർജിക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി വൃക്തമാക്കി മുതിർന്ന പൌരൻമാരെ തെരുവിലും ആശുപത്രികളിലും ഉപേക്ഷിക്കുന്നവർക്കെതിരെ നിയമപരമായ കർശന നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ യു

ജോസ് മുന്നറിയിപ്പ് നൽകി

സന്നദ്ധ് സംഘടനകൾ വഴി ഇവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയെടുത്തുവരികയാണ് ് പ്രളയക്കെടുതിയിലായ വ്യാപാരുമേഖലയ്ക്ക് കരുത്ത് പകരാൻ പത്തനംതിട്ട ജില്ലയിൽ പത്തു ലക്ഷം രൂപയുടെ വരെ വായ്പ നൽകാൻ ബാങ്കുകൾ സന്നദ്ധമാണെന്ന് ലീഡ് ബാങ്ക് മാനേജർ ബി